പ്രചാരണം ഊർജിതം പ്രമുഖ കക്ഷി നേതാക്കൾ പ്രചാരണ രംഗത്ത്

വിദേശകാര്യ മന്ത്രി സുഷമാസ്വരാജ് ഇന്ന് യു

സന്ദർശിക്കും

ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നും സ്തംഭിച്ചു

തളച്ച് ഇന്ത്യ ക്വാർട്ടർ ഫൈനൽ സാധൃത നിലനിർത്തി

വെള്ളിയാഴ്ചയാണ് രണ്ടു സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ്

ജെ

ജെ

ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി രാജ്നാഥ് സിന്ഗ് കോൺഗ്രസ് നേതാക്കളായ ഗുലാം നബി ആസാദ് നവജ്യോദ്സിദ്ദു നടി അമീഷ പട്ടേൽ എന്നിവരും പ്രചാരണ രംഗത്തുണ്ട്

നേതാവ് മായാവതി ഇന്ന് വിവിധ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി നാളെ പര്യടനം നടത്തും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിലെ എൽ

കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഗഡ്വാൾ തണ്ടൂർ എന്നിവിടങ്ങളിലെ റാലികളെ ഇന്ന് അഭിസംബോധന ചെയ്യും

പ്രസിഡന്റ് കെ ചന്ദ്രശേഖർ റാവു സംസ്ഥാനത്തുടനീളം പ്രചാരണത്തിലാണ് ന്യൂസ്ഡെസ്ക് ആകാശവാണി

ആഗോള സമ്പദ്ഘടനയിൽ ലോക കസ്റ്റംസ് ഓർഗനൈസേഷന്റെ സേവനങ്ങൾ വിലപ്പെട്ടതാണെന്ന് ജയ്റ്റ്ലി പറഞ്ഞു സ്വതന്ത്ര വ്യാപാര നയത്തെ ബാധിക്കുന്ന വാണിജ്യ തടസ്സങ്ങൾ നീക്കണം ലോക വ്യാപാരം മെച്ചപ്പെടുത്താൻ രാജ്യാ പ്രതിജ്ഞാബദ്ധമാണെന്ന് അരുൺ ജയ്റ്റ്ലി അറിയിച്ചു

സാമ്പത്തിക സാങ്കേതിക സഹകരണം ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ യു എ

ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയിദ് അൽ നഹ്യാനുമായി ശ്രീമതി സുഷമ സ്വരാജ് അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തും അബുദാബിയിലെ ഗാന്ധി സയിദ് ഡിജിറ്റൽ മ്യൂസിയം കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും

സൻഗ്രാൻ മേഖലയിൽ പുലർച്ചെയായിരുന്നു ഏറ്റുമുട്ടൽ സുരക്ഷാസേനയ്ക്കു നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു

ആളപായമുണ്ടായതായി റിപ്പോർട്ടില്ല തെരച്ചിൽ തുടരുകയാണ്

രാജേന്ദ്രപ്രസാദിന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് എന്നു പ്രചോദനമാണെന്ന് ശ്രീ നരേന്ദ്രമോദി അനുസ്മരിച്ചു

രാജേന്ദ്രപ്രസാദിന് പ്രണാമമർപ്പിച്ചു

ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെയും ക്ഷേമത്തെയും കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം

ഇതോടനുബന്ധിച്ച് ബർക്കത്തുള്ള ഭവനിൽ പ്രാർത്ഥന യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ഇന്നലെ സ്മരണാഞ്ജലി അർപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണം വ്യാവസായിക സുരക്ഷ എന്നിവയുടെ ആവശ്യകതയിലേക്ക് രാജ്യങ്ങളുടെ ശ്രഭ്ധു തിരിക്കാൻ ഭോപ്പാൽ ദുരന്തം കാരണമായതായി ഗപ്പർണ്ണർ പറഞ്ഞു

അത് ഫലപ്രദമായി നടപ്പാക്കുന്നതിന് കൂടുതൽ ഊന്നൽ നൽകും ഇത് മൂന്നാം തവണയാണ് കാലാവസ്ഥ വ്യതിയാനത്തെ സംബന്ധിച്ച സമ്മേളനത്തിന് പോളണ്ട് വേദിയാകുന്നത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഡോ ഹർഷവർധനാണ് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്

കൂടുതൽ വിവരങ്ങളുമായി സോഫിയ നിലവിലെ പഞ്ച വത്സര പദ്ധതിക്കുള്ള തുകയുടെ ഇരട്ടിത്തുകയാണ് ലോക ബാങ്ക് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രതിസന്ധി നേരിടാനുള്ള പദ്ധതികൾക്ക് യു

കാലാവസ്ഥാ വ്യതിയാന നിയന്ത്രണങ്ങൾക്ക് സുപ്രധാന കരുതൽ നടപടികൾക്കൊപ്പം ആഗോള സമൂഹത്തിനുള്ള വ്യക്തമായ സന്ദേശം കൂടിയാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ലോകബബാങ്ക് പ്രസ്താവനയിൽ വ്യക്തമാക്കി

മൂന്നിലൊന്നു തുക ലോകബാങ്കിന്റെ ഗ്രൂപ്പ് ഏജൻസികൾ നൽകും അവശേഷിക്കുന്ന പണം സ്വകാര്യ ഏജൻസികളിൽ നിന്ന് ലോക ബാങ്ക് നേരിട്ട് സമാഹരിക്കും

പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയതോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ്ഇന്നുത്തേക്ക് പിരിഞ്ഞു ഒട്ടേറെ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടതിനാൽ സഭാ നടപടികൾ തടസപ്പെടുത്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല്പ്പ് സ്ട് ആരംഭിച്ചപ്പോൾ ചോദ്യോത്തര വേളയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു ശബരിമല വിഷയത്തിൽ മൂന്ന് യു ഡി എഫ് എം

എ മാർ സഭാകവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

എഫ് എം

എൽ എ മാരായ എൻ ജയരാജ് വി

ശിവകുമാർ പാറയ്ക്കൽ അബ്ദുള്ള എന്നിവരാണ് സത്യാഗ്രഹം ഇരിക്കുന്നത് ശബരിമലയിൽ നിരോധനാജ്ഞ പിൻവലിക്കുക അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷ സമരം

ഗ്രൂപ്പ് സി വിഭാഗത്തിൽ ഇരു ടീമുകളും രണ്ട് ഗോൾ വീതമാണ് നേടിയത് ബെൽജിയത്തിനുവേണ്ടി അലക്സാണ്ടർ ഹെൻട്രിക് ഗോനാർഡ് സൈമൺ എന്നിവർ ഗോൾ നേടിയപ്പോൾ ഹർമൻ പ്രീത് സിമ്രൻജീത്ത് സിംഗ് എന്നിവർ ഇന്ത്യയ്ക്കുവേണ്ടി ഗോളുകൾ നേടി

പി സെക്രട്ടറിയേറ്റിനു മുന്നിൽ സമരം ആരംഭിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി

ദേശീയ ജനറൽ സെക്രട്ടറി സരോജ് പാണ്ഡെ എം പി സമരം ഉദ്ഘാടനം ചെയ്തു

ജെ പി എം പിമാരും ദേശീയ നേതാക്കളും ഉൾപ്പെട്ട സംഘം പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തി റിമാൻഡിൽ കഴിയുന്ന ബി

പി നേതാവ് കെ

രാഷ്ട്രീയ തടവുകാരോട് കാട്ടേണ്ട മര്യാദ ശ്രീ സുരേന്ദ്രനോട് പോലീസ് കാണിക്കുന്നില്ലെന്ന് നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് പി

സംഘം ഇന്നലെ ഗവർണറെ സന്ദർശിച്ചിരുന്നു